എം ഷാജി എം

എയ്ക്കുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സ്പീക്കറുടെ അനുമതി

നാളെ രാവിലെ ഗൾഫ് ഓഫ് മാന്നാറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ചുഴലിക്കാറ്റ് മറ്റന്നാൾ പുലർച്ചയോടെ പാമ്പനും കന്യാകുമാരിക്കും ഇടയിൽ തെക്കൻ തമിഴ്നാട് തീരം തൊടുമെന്നാണ് പ്രവചനം ദേദ ഇതേതുടർന്ന് തെക്കൻ കേരളം തെക്കൻ തമിഴ്നാട് തീരങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുഴലിക്കാറ്റ് സാധ്യതാ മുന്നറിയിപ്പ് നൽകി ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകുന്നതിന് എല്ലാതരം മത്സ്യബന്ധന യാനങ്ങൾക്കും പൂർണമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് പലയിടത്തും അതി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിതീവ്ര മഴക്കും ശക്തമായ കാറ്റിനും സാധ്യത കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും നാളെ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും നാളെയും മറ്റന്നാളും തൃശൂർ പാലക്കാട് ജില്ലകളിലും മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു ദ്ദേ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരള തമിഴ്നാട് ചീഫ് സെക്രട്ടറിമാരുമായും ലക്ഷദ്വീപ് അഡ്വൈസറുമായും വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായും ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തി വ്യത്യസ്ത വേഗത്തിൽ ആഞ്ഞുവീശുന്ന ചുഴലിക്കാറ്റ് കേരള തമിഴ്നാട് തെക്കൻ തീരങ്ങളെയും ലക്ഷദ്വീപിനെയും ബാധിക്കാനിടയുണ്ടെന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ യോഗത്തിൽ അറിയിച്ചു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ച നടപടികൾ ചീഫ് സെക്രട്ടറിമാർ വിവരിച്ചു ദേദ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേന സംഘങ്ങൾ ഇടുക്കി ജില്ലയിലെത്തി മൂന്നാർ പൈനാവ് എന്നിവിടങ്ങളിലാണ് സംഘം ക്യാമ്പ് ചെയ്യുന്നത് ദ്ദേ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം അറുപതിനായിരത്തിലേക്ക്

ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ കോവിഡ് നിയന്ത്രണങ്ങളിൽ അയവു വന്നെങ്കിലും ജാഗ്രത തുടർന്നാൽ മാത്രമേ അതിജീവനം സാധ്യമാകൂ എന്ന് നടി അനുസിതാര ആകാശവാണിയോട് പറഞ്ഞു

ഇനിമുതൽ പ്ലാസ്മ നൽകുന്നയാൾക്കും സ്വീകരിക്കുന്നയാൾക്കും ആന്റിബോഡി ഉണ്ടോയെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും പ്പാസ്മ തെറാപ്പി നൽകുകയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളജുകളിലും പ്രധാന കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലും കോവിഡ് കോൺവലസന്റ് പ്ലാസ്മ ഉപയോഗിച്ച് കോവിഡ് രോഗികളെ ചികിത്സിച്ചു വരുന്നുണ്ട്

സ്പെഷ്യൽ പോളിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ സംഘമാണ് ബാലറ്റുകൾ വിതരണം ചെയ്യുന്നത് വിശദാംശങ്ങളുമായി ഹസീല ടാംടൺ ദേദ ഈമാസം എട്ടിന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ സ്പെഷ്യൽ വോട്ടർ പട്ടികയിലുള്ളവർക്കാണ് ഇന്നുമുതൽ പോസ്റ്റൽ ബാലറ്റുകൾ ലഭിക്കുക

ബാലറ്റ് ലഭിക്കുമ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് ടീമിന് കൈമാറാം

ലിസ്റ്റിലെ മറ്റ് ജില്ലയിലുള്ളവർക്ക് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ വരണാധികാരി വോട്ടറുടെ ഇപ്പോഴത്തെ മേൽവിലാസത്തിൽ തപാൽ മാർഗം ബാലറ്റ് അയച്ചുകൊടുക്കും

തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കായി ഇന്നു മുതൽ പോസ്റ്റൽ ബാലറ്റ് വിതരണം ചെയ്യുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി ദേദ കോവിഡ് പോസിറ്റീവ് ആയവർക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ ബാലറ്റ് പേപ്പർ വഴി വോട്ട് ചെയ്യുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ച ഉദ്യോഗസ്ഥർ നിശ്ചിത സമയത്ത് ഡ്യൂട്ടിക്ക് ഹാജരാകണമെന്ന് എറണാകുളം ജില്ലാ കലക്ടർ ഉത്തരവിട്ടു വീഴ്ചവരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ജനപ്രാതിനിധ്യ നിയമ പ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ അറിയിച്ചു ദേദ ബാർകോഴ കേസിൽ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും അനധികൃത സ്വത്ത് സമ്പാദനകേസിൽ കെ എം ഷാജി എം എൽഎയ്ക്കുമതിരെ വിജിലൻസ് അന്വേഷണത്തിന് സ്പീക്കർ അനുമതി നൽകി കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ചെന്നിത്തലയ്ക്ക് കോഴ നൽകിയെന്ന ബാർ ഉടമ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം

അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു

ബി ഗണേഷ്കുമാർ എം

യുടെ പി എ പ്രദീപ്കുമാറിന്റെ വീട്ടിലും പൊലീസ് പരിശോധന നടത്തി ദേദ ഇന്ത്യ ഓസ്ട്രേലിയ അവസാന ഏകദിനം ഇന്ന് കാൻബറയിൽ മൂന്ന് മത്സര പരമ്പരയിൽ രണ്ടും ജയിച്ച് ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കിയെങ്കിലും ആശ്വാസജയം തേടിയാണ് ഇന്ത്യ ഇന്ന് കളിക്കാനിറങ്ങുന്നത്

എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റി എഫ് സിക്ക് തകർപ്പൻ ജയം ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് പനജിയിൽ നടന്ന മത്സരത്തിൽ മുംബൈ തോൽപ്പിച്ചത്

സി ജംഷഡ്പൂർ എഫ് സിയെ നേരിടും

ദേദ കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പുത്തരി തിരുവപ്പന ഉത്സവത്തിന് തുടക്കമായി

ഈ മാസം അഞ്ച് വരെ നടക്കുന്ന ഉത്സവത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്

അബദ്ധത്തിൽ ഇയാളുടെ തോക്കിൽ നിന്ന് വെടിയേറ്റതായാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് അറിയിച്ചു ദേദ കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഇലക്ട്രിക്ക് പോസ്റ്റിൽ ജോലിക്കിടെ അപകടത്തിൽപ്പെട്ട ജീവനക്കാരൻ മരിച്ചു

ദേദ തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കും പരിശീലന പരിപാടി ആരംഭിച്ചു ജില്ലയിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന എട്ട് നഗരസഭകളിലെയും കണ്ണൂർ കോർപറേഷനിലെയും ഉദ്യോഗസ്ഥർക്കാണ് നാലു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി തുടങ്ങിയത്